ഏഴാം ഘട്ടത്തിന്റെ പ്രചാരണം മൂർദ്ധനൃത്തിലേക്ക് വിഖ്യാതമായ തൃശൂർ പൂരം തുടങ്ങി കേരള കോൺഗ്രസ് നേതൃസ്ഥാനങ്ങൾ സംബന്ധിച്ച തർക്കം രൂക്ഷം പൊലീസുകാരുടെ പോസ്റ്റൽ ബാലറ്റിൽ തിരിമറിയുണ്ടെന്നാരോപിച്ച് പ്രതിപക്ഷനേതാവ് ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും സംസ്ഥാനത്തെ സ്കൂളുകൾക്കായി കൈറ്റ് പരിഷ്കരിച്ച സ്വതന്ത്ര ഓപ്പ റേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കി

പ്രധാന മന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബി ജെ പി അധ്യ ക്ഷൻ അമിത് ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സജീവമായി പ്രചാരണ രംഗത്തു ണ്ട് ഇന്ന് പഞ്ചാബിൽ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനും പ്രചാരണം നടത്തും വിഖ്യാതമായ തൃശൂർപൂരം തുടങ്ങി

പതിനൊന്നരയോടെ പഞ്ച്വാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയുടെ തെക്കോട്ടിറക്കം തുടങ്ങും

തുടർന്ന് മേള ത്തോടെ വടക്കുംനാഥക്ഷേത്രത്തിനുള്ളിലെ ഇല്ഞ്ഞിമരത്തിനടുത്തേക്ക് എത്തും തുടർന്ന് രണ്ടര മണിക്കൂറോളം സമയത്തെ ഇലഞ്ഞിത്തറമേളം നടക്കും ഉച്ചക ഴിഞ്ഞ് ഇരുവിഭാഗവും മുഖാമുഖം കണ്ടശേഷമാണ് പൂരത്തിലെ നയനമനോഹര മായ കുടമാറ്റം

രാത്രി പൂരചടങ്ങുകൾ ആവർത്തിക്കും പുലർച്ചെ വെടിക്കെട്ടിനുശേഷം വടക്കുംനാഥ സന്നിധിയിൽ നിന്ന് പൂരപങ്കാളികൾ കൊട്ടിപ്പിരിയും കേരള കോൺഗ്രസിന്റെ നേതൃസ്ഥാനങ്ങൾ തീരുമാനിക്കാനിരിക്കെ വൈസ് ചെയർമാൻ ജോസ് കെ മാണിയെ ചെയർമാനാക്കണമെന്നാവശ്യപ്പെട്ട് പത്തോളം ജില്ലാ പ്രസിഡന്റുമാർ രംഗത്തെത്തി ചങ്ങനാശ്ശേരിയിൽ പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ സി

പിന്നീട് പാലായിലെത്തി ചെയർമാൻസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ജോസ് കെ മാണിയോടും അവർ ആവശ്യപ്പെട്ടു പാർട്ടി ചെയർമാൻ പാർലമെന്ററി പാർട്ടി നേതാവ് എന്നീ നേതൃസ്ഥാനങ്ങളെചൊല്ലി വർക്കിംഗ് ചെയർമാൻ പി

ജോസഫ് നയിക്കുന്ന വിഭാഗവുമായി തർക്കം നിലനിൽക്കെയാണ് ജില്ലാ പ്രസി ഡന്റുമാരുടെ നീക്കം അതിനിടെ പാർട്ടി ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് ഉടൻ തന്നെ തീരുമാനമാകുമെന്ന് ജോസ് കെ

എന്നാൽ ജില്ലാ പ്രസിഡന്റുമാരല്ല പാർട്ടി നേതൃത്വമാണ് ചെയർമാൻ സ്ഥാനമ ടക്കം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പി

ജോസഫ് തൊടുപുഴയിൽ പ്രതികരിച്ചു

പൊലീസുകാർക്ക് നൽകിയ എല്ലാ പോസ്റ്റൽ വോട്ടുകളും പിൻവലിച്ച് വീണ്ടും വോട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നത് ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു ് ് ് ് ് ് ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പൊലീസുകാർക്ക് തപാൽ ബാലറ്റ് ലഭിച്ചില്ലെന്ന പരാതി വിവാദമായതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേ ഷണം ആരംഭിച്ചു

വിനോദ്കുമാറിന്റെ നേതൃത്വത്തിലെ ത്തിയ സംഘം പ്രാഥമിക പരിശോധന നടത്തി

ഇന്നലെ നെതർലാന്റ് സിൽ മുഖ്യമന്ത്രി പിണറായി വിജ യൻ ആൻഫ്രാങ്ക് ഹൌസ് സന്ദർശിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത ഡയറിയിൽ പകർത്തിയ ആൻഫ്രാങ്കിനായി ആംസ്റ്റർഡാമിൽ നിർമ്മിച്ച ജീവചരിത്ര മ്യൂസിയമാണ് ആൻഫ്രാങ്ക് ഹൌസ്

് സംസ്ഥാനത്തെ സ്കൂളുകളിലെ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കാവുന്ന പരിഷ്കരിച്ച സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് പുറത്തിറക്കി സ്കൂളുകളിൽ ആവശ്യമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതിനുപുറമെ വീടുകളിലും ഗവൺമെന്റ് ഓഫീസുകളിലും ഡി ടി പി സെന്ററുകളിലും ഉൾപ്പെടെ എല്ലാ മേഖലയിലും സമ്പൂർണ്ണ പ്ലാറ്റ്ഫോമായി പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൌജന്യമായി ഉപയോഗി ക്കാം പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ആപ്ലിക്കേഷനുകൾക്ക് പണം നൽകേണ്ടി യിരുന്നെങ്കിൽ ഒന്നരലക്ഷം രൂപയെങ്കിലും ഓരോ കമ്പ്യൂട്ടറിനും വേണ്ടി വരുമായി രുന്നുവെന്ന് കൈറ്റ് വൈസ് ചെയർമാനും എക്സി ക്യൂട്ടീവ് ഡയറക്ടറുമായ കെ അൻവർ സാദത്ത് അറിയിച്ചു

ഹൈദ രാബാദിൽ ആവേശകരമായ കലാശ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിംങ്സിനെ ഒരു റണ്ണിനാണ് മുംബൈ തോൽപിച്ചത് മുംബൈയുടെ നാലാം ഐ പി എൽ കിരീടമാണിത് അഞ്ചാം തവണയാണ് ചെന്നൈ ഫൈന ലിൽ പരാജയപ്പെടുന്നത്

ബ്ലാസ്റ്റേഴ്സിനെ തോല്പിച്ച് ആതിഥേയരായ ഗോകുലം കേരള എഫ് സി ഫൈനലിൽ കടന്നു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇരുടീമുകളും ഗോൾരഹിത സമനില പാലിച്ചതിനെ തുടർന്ന് ഷൂട്ടൌട്ടിലാണ് വിജയികളെ നിശ്ചയിച്ചത് ഫൈനലിൽ ഗോകുലം കേരള ഇന്ത്യൻ നേവിയെ നേരിടും

ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പെൺകൂട്ടികളുടെ വിഭാഗത്തിൽ കോട്ട യവും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറവും ചാമ്പൃന്മാരായി എറണാകു ളവും പത്തനംതിട്ടയുമാണ് റണ്ണേഴ്സ് അപ്പ്

കൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഇ

ജയരാജൻ കാസർക്കോട്ട് നീലേശ്വരത്ത് പറ ഞ്ഞു

് ് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് തുടർന്നാൽ മാലിന്യ ക്കൂമ്പാരങ്ങൾ മാറാരോഗത്തിലേക്ക് കേരളത്തെ നയിക്കുമെന്ന് മന്ത്രി ഡോക്ടർ കെ

ജലീൽ പറഞ്ഞു ശുചീകരണയജ്ഞ പരിപാടിയുടെ തവനൂർ പഞ്ചായത്തുതല ഉദ്ഘാടനം മിനിപമ്പയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി മഹാകവി പി

കുഞ്ഞിരാമൻനായരുടെ ജന്മനാടായ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് രൂപീകരിച്ച പി സാഹിത്യവേദി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചുള്ളിക്കാട്

തുറക്കും മറ്റന്നാൾ പുലർച്ചെ മുതൽ പതിവുപൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഞായറാഴ്ച രാത്രി നടയടയ്ക്കും ് ജനീവയിൽ ഇന്നാരംഭിക്കുന്ന ഐക്യരാഷ്ട്രസഭാ ലോക പുനർനിർമ്മാണ സമ്മേളനത്തിൽ വിഷയത്തിൽ എഴുത്തുകാരിയും മമ്പാട് എം ഇ എസ് കോളേജ് മലയാള വിഭാഗം മേധാവിയുമായ ഡോ മൈന ഉമൈബാൻ പ്രബന്ധ മവതരിപ്പിക്കും ലോകത്ത് പ്രകൃതിക്ഷോഭങ്ങൾ നേരിട്ട രാജൃങ്ങളിലെ ഭർണാധികാരികളും ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളും സെമിനാറിൽ സംബന്ധിക്കും ് ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റായി കെ

വീണ്ടും തെരഞ്ഞെടുത്തു

ശിവനാണ് വർക്കിംഗ് പ്രസിഡന്റ് ആറന്മുള യിൽ സമാപിച്ച യോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയായിരുന്ന സ്കൂൾ അധ്യാ പകൻ നിയന്ത്രണം വിട്ടുവന്ന കാറിടിച്ച് മരിച്ചു തിരൂർ ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻറി സ്കൂൾ അധ്യാപകൻ പറവണ്ണമുറി വഴിക്കൽ കുഞ്ചേരിയിൽ മുഹമ്മദ് അൻസാരിയാണ് മരിച്ചത്

സൈക്കിൾ യാത്രക്കാ രനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചെടുത്ത കാർ നിയന്ത്രണം വിട്ട് അധ്യാപകനെ ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു മൃതദേഹം ഉച്ചയ്ക്ക് പറവണ്ണ ജുമാമസ്ജിദിൽ കബറടക്കും

മുത്തങ്ങയിൽ കെ എസ് ആർ

കോഴിക്കോട് സിവിൽസ്റ്റേഷനു സമീപം കുന്നേൽ ജോസ് തോമസ് ആണ് മരിച്ചത്

ഒരു ബസ് യാത്രക്കാരനും പരിക്കേറ്റു

കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കൃഷ്ണനെ രണ്ട് കൊമ്പനാനകൾ ആക്രമിക്കു കയായിരുന്നു

ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനാപകടത്തിൽ മരിച്ചു കോതമംഗലം ഭൂതത്താൻകെട്ട് അറയ്ക്കക്കുടിയിൽ വീട്ടിൽ ഷിഹാബുദ്ദീൻ ആണ് മരിച്ചത് തൊടുപുഴ കരിങ്കുന്നം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്നു

ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പരിക്കുക ളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ് കണ്ണൂർ കൂട്ടുപുഴ അതിർത്തിയിൽ നിന്ന് പതിനാലുലക്ഷത്തിൽപരം രൂപയുടെ കുഴൽപ്പണം പൊലീസ് പിടിച്ചെടുത്തു വാഹന പരിശോധനയ്ക്കിടെ സ്വകാര്യബസ് യാത്രക്കാരൻ ഉളി സ്വദേശി അസീസിൽ നിന്നാണ് പണം കണ്ടെ ത്തിയത്

രണ്ട് ദിവസത്തെ സമ്മേളനം മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും

ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് ആർംഭിക്കും